പ്രതിരോധം സംബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു

യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ റാഫേൽ നദാൽ ചാമ്പ്യൻ

ജലദൌർലഭൃത്തിന് ആഗോളും തലത്തിൽ പരിഹാരമുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാലാവസ്ഥയും പരിസ്ഥിതിയും ജൈവ വൈവിധൃത്തെ ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തെറ്റായ കാലാവസ്ഥാ മാറ്റമാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തു

ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നും ശ്രീ മോദി കൺവെൻഷനെ അഭിസംബോധന ചെയ്യവേ സൂചിപ്പിച്ചു പരിസ്ഥിതി നാശത്തിലൂടെ ഭൂപ്രദേശം മരൂഭൂമിയായി മാറുന്നത് തടഞ്ഞ് ഗുണപരമായ മാറ്റം കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ ആവിഷ് കരിക്കുകയാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട

വീണ്ടെടുക്കലിനുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് വിവിധരാജൃങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ നിർദേശങ്ങൾ പരിഗണിച്ചായിരിക്കും ഇത്

ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ മരുഭൂവൽക്കരണ പ്രതിരോധം സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ നിടുക്കുന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സുസ്ഥിര വികസനം സംബന്ധിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയ്ുടെ നിലപാട് ശക്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

വിശദാംശങ്ങളുമായി ബിന്ദു

സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഐസ്ലാൻഡിൽ എത്തുന്ന രാഷ്ട്രപതി ഐസ്ലാൻഡ് പ്രസിഡന്റ് ഗുഡ്നി ജോഹ്നാസനുമായും പ്രധാനമന്ത്രി കത്രീൻ ജാക്കോബ്സുമായും ചർച്ച നടത്തും

ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയൂടെ സ്ലൊവ്വീനിയയിലേക്കുള്ള ആദ്യ സന്ദർശനം കൂടിയാണ് ഇത് സന്ദർശനിത്തിനിടെ അദ്ദേഹം സ്ലോവേനിയൻ പ്രസിഡന്റുമായും ദേശീയ ക് അസംബ്ലി അധ്യക്ഷനുമായും വിവിധ വിഷയങ്ങളിൽ ആശയവിനിമിയ് നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ

ഡി എയുടെ സഖ്യകക്ഷിയായ വടക്കു കിഴക്കൻ സഖ്യത്തിന്റെ നാലാമത് യോഗം അസ്സമിലെ ഗുവാഹത്തിയിൽ ഇന്ന് ചേരും

ജെ

പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷായുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേത്യാക്കളും മന്ത്രിമാരും ചെയർപേഴ്സൺമാരും യോഗത്തിൽ പ്രിങ്കെടു്ക്കും വടക്കു കിഴക്കൻ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെട്ടുത്തുക്കയാണ് ഈ യോഗം വഴി ഉദ്ദേശിക്കുന്നത്

എ

എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര എണ്ണ പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ യു

ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് അബുദാബിയിൽ പെട്രോളിയം വകുപ്പ് ചുമതലയുള്ള സുബൈൽ മൊഹമ്മദിനെയും ശ്രീ ധർമ്മേന്ദ്രപ്രധാൻ സൌദി അറേബ്യയും ഖത്തറും സന്ദർശിക്കും

പേർ ഹോങ്കോംഗിനു വേണ്ടി ഹ്ദ്ദേങ്ങ്കോംഗ് ജനാധിപത്യ മനൂഷ്യാവകാശ നിയമം എന്ന ബിൽ പാസ്ടക്കണമെന്ന് പ്രക്ഷോഭകർ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നാൽ റാലിക്ക് ശേഷം അക്രമസംഭവങ്ങൾ ഉണ്ടായതിനാൽ പൊലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു

ജമ്മുകാശ്മീരിന് പുതിയ നിയമസഭ രൂപീകരിക്കും അതേസമയം കേന്ദ്ര ഭരണത്തിൻ കീഴിലുള്ള ലഡാക്കിന് നിയമസഭാ ഉാകില്ല

ജെ

എൻ മനുഷ്യാവക്കാൾ കമ്മിഷന്റെയും വരാനിരിക്കുന്ന യോഗങ്ങളിലും വിഷയം യു

കാശ്മീരിന്റെ സ്ഥിതി ശാന്തമായതിന്റെ മുഴുവൻ അംഗീകാരവും കശ്മീർ ജനതയ്ക്ക് അർഹതപ്പെട്ടതാണെന്നും ഗവൺമെന്റും സുരക്ഷാസൈന്യവുമായുള്ള കാശ്മീർ ജനതയുടെ സഹകരണത്തിൽ പാകിസ്ഥാൻ അസ്വസ്ഥമാണെന്നും ബ്രിഗേഡിയർ അനിൽ ഗുപ്ത പറഞ്ഞു

അപ്രതീക്ഷിതമായി ഉായ സമരത്തെ തുടർന്ന് ആയിരത്തോളം പേരുടെ യാത്ര തടസപ്പെട്ടു

് ഫൈനലിൽ റഷ്യൻ താരം മെദ്വദേവിനെ പരാജയ്ക്കപ്പടുത്തിയാണ് നദാൽ ചാമ്പ്യനായത് ര ിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് അദ്ദേഹത്തിന്റെ വിജയം

സമനില പ്രതീക്ഷിച്ച് കളിച്ച ഇംഗ്ലണ്ട് അഞ്ചാം ദിനം അവസാന സെഷനിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു

നാല് വിക്കറ്റുമായി കമ്മിൻസും രണ്ട് പേരെ വീതം പുറത്താക്കി ഹേസൽവുഡും ലിയോണുമാണ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ എറിഞ്ഞിട്ടത്

അവസാന മത്സരം തോറ്റാലും കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻമാർ എന്ന നിലയിൽ കിരീടം ഓസ്ട്രേലിയയുടെ കൈയ്യിലെത്തും

ബേഠി ബച്ഛാവോ ബേഠി പഠാവോ സന്ദേശം വിളിച്ചോതുന്ന ടീഷർട്ട് ധരിച്ച് ഉധംപൂരിൽ നിന്ന് ജമ്മു വരെയാണ് അദ്ദേഹം സൈക്കിൾ യാത്ര ചെയ്തത്

പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ് പ്രധാനപ്പെട്ട ഡാമുകളുടെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറന്ന് വെള്ളം ഒഴുക്കിക്കളയുകയാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ

ജോസഫ് ജോഷി ഫിലിപ്പ് എന്നിവരാണ് ജോസഫ് വിഭാഗം നേതാക്കളുമായി കോട്ടയത്ത് ചർച്ച നടത്തുന്നത്